നൽകുന്നതിനുള്ള രജിസ്ട്രേഷൻ നാളെ ആരംഭിക്കും

നരേന്ദ്രമോദിയും അമേരിക്ക്ൻ പ്രസിഡന്റ് ജോ ബൈഡനും വിലയിരുത്തി

കമ്മീഷൻ നിരോധിച്ചു

രാജ്യത്ത് ഇതുവരെ പതിനാലരക്കോടിയിലധികം വാക്സിൻ ഡോസുകൾ നൽകിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു

ഇരു രാജ്യങ്ങളിലെയും കോവിഡ് സ്ഥിതിഗതികൾ നേതാക്കൾ വിശദമായി ചർച്ച ചെയ്തു മരുന്നുകൾ ആരോഗ്യസംരക്ഷണ ഉപകരണങ്ങൾ എന്നിവയുടെ വിതരണം ഉറപ്പാക്കുന്നത് സംബന്ധിച്ചും പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ മഹാമാരിയുടെ രണ്ടാം തരംഗം നേരിടാനുളള ശ്രമങ്ങളും ചർച്ചയായി

കോവിഷീൽഡ് വാക്സിൻ ഉല്പാദനത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാക്കുമെന്ന് അമേരിക്ക വ്യക്തമാക്കി ഇന്ത്യയ്ക്ക് അമേരിക്ക നൽകുന്ന പിന്തുണയ്ക്ക് ശ്രീ മോദി നന്ദി അറിയിച്ചു

ഇ

അക്ഷയപാത്ര നാരായണ സേവ സൻസ്ഥാൻ റെഡ്ക്രോസ് തുടങ്ങി നിരവധി സംഘടനകൾ വിവിധ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു

ഇന്നലെ റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും രോഗബാധിതരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതിനാൽ രോഗമുക്തിനിരക്ക് തുടർച്ചയായി കുറയുകയാണ്

ജനിതക വ്യതിയാനം സംഭവിച്ച വൈറസുകൾ കേരളത്തിൽ ഏപ്രിൽ ആദ്യവാരത്തിൽ തന്നെ വ്യാപിച്ചു കഴിഞ്ഞെന്നാണ് പുതിയ വിവരങ്ങൾ വ്യക്തമാക്കുന്നത്

സംസ്ഥാനത്തെ കോവിഡ് കേസുകൾ വർധിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ വിളിച്ചുചേർത്ത സർകക്ഷിയോഗത്തിന്റേതാണ് തീരുമാനം സിനിമാ തിയേറ്റർ ഷോപ്പിങ് മാൾ ജിംനേഷ്യം ക്ലബ് സ്പോർട്സ് കോംപ്ലക് സ് നീന്തൽക്കുളം പാർക്കുകൾ എന്നിവയും അടച്ചിടാൻ തീരുമാനിച്ചിട്ടുണ്ട്

നഗരത്തിലെ ആശുപത്രികളിലെ ഓക്സിജൻ ക്ഷാമം പരിഹരിക്കാൻ ഇത് സഹായകമാകും ഓക്സിജൻ എക്സ്പ്രസ് ട്രെയിൻ റായ്ഗഡിൽ നിന്ന് ദില്ലിയിലെത്തിയ കാര്യം റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ സ്ഥിരീകരിച്ചു

അടുത്ത ഞായറാഴ്ചയാണ് വോട്ടെണ്ണൽ

കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ പശ്ചിമ ബംഗാളിലെ റോഡ് ഷോയും വാഹന റാലികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരോധിച്ചിരുന്നു

രണ്ട് മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് സ്ഥാനാർത്ഥികളുടെ ദേഹവിയോഗം മൂലം മാറ്റിവച്ചു

ആക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷ ക്രമീകരണം ശക്തമാക്കിയിരുന്നു

പകർച്ചവ്യാധി നിയന്ത്രണം പ്രതിരോധ കുത്തിവയ്പ്പ് ആശുപത്രി അനുബന്ധ സൌകര്യങ്ങൾ എന്നിവ വിശാല സാമ്പത്തിക കാഴ്ചപ്പാടോടെ സുസ്ഥിരമാകണമെന്നും ആർ

ഇതു സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റികൾക്ക് നൽകിയതായി കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി മുക്താർ അബ്ബാസ് നഖ്വി അറിയിച്ചു

കോവിഡ് മഹാമാരിക്കെത്തിർ പോരാടാൻ ഭഗവാൻ ഹനുമാന്റെ അനുഗ്രഹമുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

സ്വർണ്ണ വിലയിൽ നേരിയ കുറവ്

എല്ലിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും ഇന്നലെ നടന്ന മത്സരത്തിൽ കിംഗ്സ് ഇലവൻ പഞ്ചാബിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം നേടി അഞ്ച് വിക്കറ്റിനാണ് കൊൽക്കത്തയുടെ ജയം